ഈ മാസത്തെ ശമ്പളം മുതൽ പരമാവധി പത്ത് ഗഡുക്കളായിട്ടായിരിക്കും വിഹിതം പിടിക്കുക

മുമ്പ് സംഭാവന നൽകിയിട്ടുണ്ടെ ങ്കിൽ അത് കുറച്ച് ബാക്കി തുകയാണ് ഈടാക്കുക

ഇത് നൽകാത്തവരിൽ നിന്ന് സ്പാർക്ക് വഴി ഒരു മാസത്തെ ശമ്പളം മുഖ്യമ ന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിലേക്ക് അടക്കുമെന്നും ഉത്തരവിൽ പറയുന്നു ലലലലലലലലലലലലല മുഖ്യമന്ത്രി പിണറായി വിജയൻഅമേരിക്കയിൽ ചികി ത്സയ്ക്ക് പോയതുകൊണ്ട് സംസ്ഥാനത്ത് ഭരണം സ്തംഭിച്ചു എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോ പണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുളള ശ്രമമായി മാത്രമെ ഇതിനെ കാണാനാവൂ എന്ന് ഓഫീസ് തിരു വനന്തപുരത്ത് പ്രസ്താവനയിൽ അറിയിച്ചു പ്രളയദുരിതാ ശ്വാസം പുനരധിവാസം എന്നിവ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി സഭാ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്

ബാക്കിയുളളവർക്ക് ഇന്ന് ഉച്ചയോടെ സഹായം ലഭിക്കു മെന്ന് മുഖ്യ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കിറ്റ് വിതരണം പൂർത്തിയായി

സംസ്ഥാനത്തിന്റെ പുനർ നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ജില്ലാതല ധനസമാഹരണയജ്ഞത്തിന് മികച്ച പ്രതികരണം ശനിയാഴ്ച വരെ തുടരുന്ന ധനസമാഹരണത്തിന് മന്ത്രി മാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാണ് നേതൃത്വം നൽകുന്നത് സ്കൂളുകളിലും കോളേജുക ളിലും വിദ്യാർത്ഥികളുടെ സംഭാവന ഇന്നുകൂടി സമാ ഹരിക്കും

മന്ത്രിമാരായ ഇ പി ജയരാജന്റെയും കെ കെ ശൈലജയുടെയും നേതൃത്വത്തിൽ ജില്ലയിൽ എട്ട് കേന്ദ്രങ്ങളിലാണ് ഇന്നലെ ക്യാമ്പ് നടത്തിയത് ്യ ലലലലലലലലലലലല എറണാകുളം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിൽ നിന്നുമായി മൂന്നു കോടിയോളം രൂപ സമാഹരിച്ചു മന്ത്രി എ സി മൊയ്തീൻ തുക ഏറ്റുവാങ്ങി കോഴിക്കോട് ജില്ലയിൽ ആദ്യദിനം ഒന്നരകോടിയി ലേറെ രൂപ സമാഹരിച്ചു

വടകരയിൽ മന്ത്രി ടി പി രാമകൃഷ്ണനും കുറ്റ്യാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ ഫറോക്ക് എം എൽ എ ഓഫീസിലും ഉച്ചകഴിഞ്ഞ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും സംഭാവനകൾ സ്വീകരിക്കും സംഭാവന പണമായി സ്വീകരിക്കുന്നതല്ലെന്നും ചെക്കായും ഡ്രാഫ്റ്റായും നൽകണമെന്നും ജില്ലാകലക്ടർ യു വി ജോസ് അറിയിച്ചു

ധനസമാഹരണ പരിപാടിക്ക് മന്ത്രി എ കെ ബാലൻ നേതൃത്വം നൽകി ഇന്ന് ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ ധനസമാഹരണം നടക്കും

ഫണ്ട് ശേഖരണം സുതാ ര്യ മാ യി രി ക്ക ണ മെന്നും ആരിൽനിന്നും നിർബന്ധിച്ച് പണം പിരിക്കരുതെന്നും ജില്ലാകലക്ടർ കെ

ലലലലലലലലലലലലല പ്രളയ ദുരിതാശാസനിധിയ്ക്ക് പ്രത്യേക അക്കൌണ്ട് വേണ്ടെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി മലപ്പുറത്ത് പറഞ്ഞു ഈ ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെന്റിന് മറ്റെന്തെങ്കിലും ഉദ്ദേശൃങ്ങളുണ്ടോയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ലലലലലലലലലലലലല പ്രളയക്കെടുതി വിലയിരുത്താൻ സ്റ്സ്ഥാനത്തെ ത്തിയ ലോകബാങ്കിന്റെയും ഏഷ്യൻ വികസനബാങ്കി ന്റെയും പ്രത്യേകസംഘം ഇന്ന് കോഴിക്കോട് ആലപ്പുഴ ജില്ലകൾ സന്ദർശിക്കും കോഴിക്കോട് ജില്ലയിൽ കലക്ടറും ജില്ലയിലെ ഉദ്യോ ഗസ്ഥരുമായി കൂടിക്കാഴ്ചക്ക് ശേഷമാണ് സംഘം ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ആലപ്പുഴയിൽ രാവിലെ പത്ത് മുതൽ വൈകീട്ട് അഞ്ച് വരെയാണ് സന്ദർശനം കൃഷി ടൂറിസം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നേരിട്ട പ്രതി സന്ധി ഉദ്യോഗസ്ഥർ പരിഗണിക്കും

സന്ദർശനം പൂർത്തി യാക്കിയശേഷം ധനമന്ത്രിയുമായുംം ഉന്നതഉദ്യോഗ സ്ഥരുമായും സംഘം ചർച്ച നടത്തും

ജില്ലയിലെ ജനപ്രതിനിധി കളുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമാരും സംഘം സംവദിക്കും വൃത്യസ്ത മേഖലകളിലെ വിദഗ്ധരുടെ എട്ടംഗ സംഘമാണ് ജില്ലയിലെത്തുക ലലലലലലലലലലലലല സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകർ ഇന്ന് മുതൽ തിരിച്ചെത്തും

മന്ത്രി കെ ടി ജലീൽ സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി തുടങ്ങിയ വരുടെ നേതൃത്വത്തിൽ ഹാജിമാരെ സ്വീകരിക്കും

ലലലലലലലലലലലല കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് ഫ്രാങ്കോമുളയ്ക്കലിനെ ചോദ്യം ചെയ്യു ന്ന തി നായി അന്വേഷണ സംഘം നോട്ടീസ് അയക്കും

അന്വേഷണ പുരോ ഗതി വിലയിരുത്താനും തുടർ നടപടികൾക്കുമായി ഐ ജി വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകീട്ട് കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്

ഇന്ത്യൻസമയം രാത്രി ഏഴിന് ധാക്കയിലാണ് പോരാട്ടം വർഷങ്ങൾക്കു ശേഷമാണ് ഫുട്ബോളിൽ ഇന്ത്യയും പാകിസ്താനും ഏറ്റുമുട്ടുന്നത്

ലലലലലലലലലലലലല ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാമത്തെയും അവസാന ത്തെയും പ്രകിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം

അഞ്ചാം ടെസ്റ്റിൽ പരാജയം ഉറ പ്പായിരു ന്നെങ്കിലും ഇന്ത്യൻ യുവനിര പൊരുതി തോൽക്കുകയായിരുന്നു

അഞ്ചു മത്സര പരമ്പരയിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യയ്ക്ക് ജയിക്കാനായത്

യു ചിത്രയെ പാലക്കാട്ജില്ലാ സ്പോർട്സ് കൌൺസിലും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു ഇംഗ്ലണ്ടിൽ നടന്ന അന്താരാഷ്ട് ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയു ഇന്ത്യൻ ടീം അംഗങ്ങളായ വർഷക്കും കലൈവാണിക്കും പാലക്കാട് ജില്ലാ ഖോഖോ അസോസിയേഷൻ സ്വീകരണം നൽകി മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറ വളവിൽ ടാങ്കർ ലോറി മറിഞ്ഞ് രണ്ട് പേർക്ക് പരിക്കേറ്റു ഗ്യാസ് ചോർച്ചയില്ലെന്നാണ് റിപ്പോർട്ട്

ഇതുവഴി ഗതാഗതം നിർത്തിവെച്ചു

മറ്റൊരാളെ കാണാതായി കൊയിലാണ്ടി കൊല്ലം സ്വദേശി ആയിട്ടവളപ്പിൽതാഴെ അബ്ദുളള യാണ് മരിച്ചത് കൊയിലാണ്ടി സ്വദേശിയായ ബഷീറി നെയാണ് കാണാതായത് പുതിയങ്ങാടി ചൂടാട്ട് അഴിമുഖത്ത് ഇന്നലെ വൈകീട്ടായിരുന്നു അപകടം ലലലലലലലലലലലലല രാജ്യത്ത് ഉയർന്ന് വരുന്ന മതേതര ജനാധിപത്യ മുന്നേറ്റം കോൺഗ്രസ് നേതൃത്വത്തിലുളള ഗവൺമെന്റി ലേക്ക് കാരൃങ്ങളെത്തിക്കുമെന്നും അതിൽ മുസ്ലീം ലീഗ് പങ്കാളിയാകുമെന്നും മുസ്ലീംലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫ കെ എം ഖാദർ മൊയ്തീൻ പറഞ്ഞു പ്രളയ ക്കെടുതിയനുഭവിക്കുന്ന ക്രേളത്തിന് മുസ്ലീംലീഗിന്റെ തമിഴ് നാട് ഘടകം നൽകുന്ന സഹായം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കല്ലലലലലലലലലലലലല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ നിയ മത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ സി പി ഐ എം ഇപ്പോൾ വേട്ടക്കാർക്കൊപ്പമാണെന്ന് കെ പി സി സി പ്രസിഡണ്ട് എം എം ഹസ്സൻ പറഞ്ഞു മലപ്പുറത്ത് ജില്ലാകോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം പി കെ ശശിക്കെതിരായ യുവതിയുടെ പരാതി നിയ മമന്ത്രിയായ എ കെ ബാലൻ തന്നെ അന്വേഷിക്കുന്നത്

നിലവിലെ സാഹ ചര്യത്തിൽ അധിക സാമ്പത്തിക ബാധൃത്യവരുന്ന ഒരു നടപടിയും കെ എസ് ആർ ടി സിയിൽ കൈകൊള്ള ണ്ടതില്ല എന്നാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിച്ചു സംസ്ഥാനത്ത് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി നടപ്പിലാക്കിയ ശേഷം ആവ ശ്യമെന്ന് കണ്ടാൽ ഗവൺമെന്റ് ഇക്കാര്യം പ്രത്യേകം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം ഞായ റാഴ്ച തുറക്കുന്ന സാഹചര്യത്തിൽ പമ്പയിലും നില യ്ക്കലും തീർത്ഥാടകർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കാൻ വിവിധ വകുപ്പു കൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി മാത്യു ടി തോമസ് പത്തനംതിട്ടയിൽ പറഞ്ഞു പമ്പയിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുമായി എല്ലാ വകുപ്പുകളും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

വാടി മൂതാക്കര ഭാഗങ്ങളിൽ വലിയ ബോട്ടുകൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കരവലി നടത്തുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യലഭ്യത കുറയ്ക്കു ന്നതായി പരാതി ഉയർന്നിരുന്നു ലലലലലലലലലലലലല പ്പകർച്ച വ്യാധികൾ കാരണം കൂട്ടമരണം ഉണ്ടാകുന്നത് തടയാൻ നമുക്ക് സാധിച്ചുവെന്ന് മന്ത്രി കെ കെ ശൈലജ് പുറഞ്ഞു പ്രളിയശേഷം വലിയതോതിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമെന്ന ഭയം ശക്തമായിരുന്നു കൊതുക് നശീകരണവും മാലിന്യ നിർമാർജ്ജനവും ശക്തമായി തുടരേണ്ടതുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ വഴികാട്ടി ശുശ്രുഷ കേന്ദ്രത്തിനു പാലക്കാട് ജങ്ഷൻ റയിൽവേ സ്റ്റേഷനിൽ തുടക്കമായി ആരോഗൃ പരിശോധന പ്രാഥമികചികിത്സ മരുന്ന് വിതരണം നെബുലൈസേഷൻ തുടങ്ങിയ സേവനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും

രാജേഷ്

ചെയ്തു

ഇതിൽ നാല് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു

ലലലലലലലലലലലലല കോളജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ രണ്ട് കോളജുകളിൽ സംഘർഷമുണ്ടാ യി എടത്വ സെന്റ് അലോഷ്യസ് കോളജിൽ കെ എസ് യു വും എസ് എഫ് ഐയും നങ്ങ്യാർ കുളങ്ങര പി കെ എം എം കോളജിൽ എസ് എഫ് ഐയും എ ബി വി പിയും തമ്മിലുമാണ് ഏറ്റുമുട്ടിയത്